ചർച്ച നടത്തിയിട്ടില്ലെന്ന് പി കെ കുഞ്ഞാ ലിക്കുട്ടി

ശ്രീശാന്തിന്റെ ആജീവനാന്തവിലക്ക് സുപ്രീംകോടതി നീക്കി

ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സ് പട്യാലയിൽ തുടങ്ങി ഇന്ന് ലോക ഉപഭോക്തൃദിനം ൾ ൽ ൾ കോൺഗ്രസ് സീറ്റുകൾ വിട്ടു നൽകാനാവില്ലെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു ഇടുക്കി സീറ്റ് നൽകാമെന്ന് പി ജെ ജോസഫിന് ഉറപ്പു നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു ദേശീയ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയാണ് കോൺഗ്രസ് ലക്ഷ്യ മെന്നും മുല്ലപ്പള്ളി വൃക്തമാക്കി

അതുകൊണ്ടാണ് ലീഗിന് മൂന്ന് സീറ്റ് നൽകാതിരുന്നത് കെ സി വേണുഗോപാൽ വയനാട്ടിൽ മത്സരിക്കുന്ന കാരൃത്തിൽ ഹൈക്കമാന്റാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മുല്ലപ്പള്ളി അറി യിച്ചു തൃശൂരിൽ സീറ്റ് നൽകണമെന്ന് കോൺഗ്രസ് വിട്ട് ബി ജെപി യിൽ ചേർന്ന ടോം വടക്കൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയെ കുറിച്ച് പല കാര്യങ്ങളും തനിക്ക് ലഭിച്ചത് അദ്ദേഹത്തിൽ നിന്നായിരുന്നുവെന്ന് മുല്ലപ്പള്ളി വെളിപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരു ന്നതിനെ പരിഹസിക്കുന്ന സിപിഐഎം ബംഗാളിൽ പാർട്ടി നേതാക്കളും അണികളും ബി ജെപിയിലേക്ക് ഒഴുകിയ കാര്യവും പാർട്ടി ഓഫീസ് ബി ജെപി ഓഫീസായ കാര്യവും മറക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ കാര്യവും പാർട്ടി ഓർക്കുന്നത് ന്നാകുമെന്ന് മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു കോൺഗ്രസിന്റെ തീരുമാനത്തിനായി നാളെ വൈകീട്ടു വരെ കാത്തിരിക്കുമെന്ന് പി ജെ ജോസഫ് അറിയിച്ചു താനിപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണെന്ന് അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു അതേ സമയം കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തീരു മാനം അംഗീകരിക്കുമെന്ന് ഇടുക്കി ഡി സി സി പ്രസിഡണ്ട് ഇബ്രാഹിം കുട്ടി കല്ലാർ അറിയിച്ചു പി ജെ ജോസഫിനെ മത്സ രിപ്പിക്കുന്ന കാര്യത്തിൽ ഡി സി സിയോട് അഭിപ്രായം തേടി യെന്ന് അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു നല്ല തീരു മാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇബ്രാഹിംകൂട്ടി പറ ഞ്ഞു ജോസഫിനെ ഇടുക്കിയിലേക്ക് സ്ഥാഗതം ചെയ്യുന്നതായി കേരളാ കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി പറഞ്ഞു ജോസഫിന് ഇടുക്കിയിൽ ജയിക്കാൻ കഴിയുമെന്നും അതുകൊ ണ്ടാണ് കേരളാ കോൺഗ്രസ് രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു

ഡി

അടുത്തഘട്ടത്തിലെ നിയമസഭാ മണ്ഡല കൺവെൻഷനുകൾ നാളെ തൂടങ്ങും പ്രചാരണരംഗത്ത് ആദ്യ ഘട്ടത്തിൽ ലഭിച്ച മുൻതൂക്കം നിലനിർത്താനാണ് എൽ ഡി എ ഫിന്റെ ശ്രമം ലീഗ് എസ് ഡി പി ഐ ചർച്ച തെരഞ്ഞെടുപ്പ് ധാരണക്കു വേണ്ടിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഇവർ തമ്മിൽ രഹസ്യ ധാരണയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തൊടുപുഴയിൽ ആരോ പിച്ചു ഇപ്പോഴത് പരസ്യമായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വർഗീ യതയോട് വിട്ടു വീഴ്ചയില്ലാത്ത നിലപാടാണ് വേണ്ടത് യു ഡി എഫ് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെന്നും പിണ റായി കുറ്റപ്പെടുത്തി പരാജയ ഭീതി മൂലമാണ് ലീഗ് നേതാക്കൾ കൊണ്ടോട്ടിയിൽ എസ് ഡി പി ഐയുമായി ചർച്ച നടത്തിയതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപി ച്ചു എല്ലാ മുസ്ലിം തീവ്രവാദി സംഘടകളുമായി ലീഗ് ചർച്ച നട ത്തുകയാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി ചർച്ച നടത്തിയിട്ടില്ല എന്നു പറയുന്നത് വസ്തുതകൾ മറച്ചു വെക്കാൻ നടത്തുന്ന ആസൂത്രിത നീക്കമാണെന്നും കോടിയേരി പറഞ്ഞു സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് മറിക്കുക എന്നതാണ് എസ് ഡി പിഐയും ലീഗും തമ്മിലുണ്ടാക്കായി ധാരണയെന്ന് അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ യു ഡി എഫും കോൺഗ്രസും നിലപാട് വൃക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു

എസ് ഡി പിഐയോട് രാഷ്ട്രീ യമായി ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത സംഘടനയാണ് ലീഗെന്ന് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു രഹസ്യ ചർച്ച നടത്തു ന്നത് ഗസ്റ്റ്ഹൌസിലാണോയെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു ലീഗ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അപ്രതീക്ഷി തമായിരുന്നുവെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡണ്ട് അബ്ദുൾ മജീദ് ഫൈസി അറിയിച്ചു ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ ഒട്ടേറെ കാരൃങ്ങൾ ചർച്ച ചെയ്തതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

ഇപ്പോ ഴത്തെ സാഹചര്യത്തിൽ സിപിഐഎമ്മുമായും ചർച്ചക്കു തയ്യാ റാണെന്ന് മജീദ് ഫൈസി അറിയിച്ചു ബി ജെ പി ലോക് സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ പുറത്തിറക്കും പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി നിർണയത്തിനായി ന്യൂഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട്

ലോക്സഭ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാതൃകാ പെരു മാറ്റച്ചട്ടം നടപ്പാക്കുന്നതിനും ചെലവ് നിരീക്ഷിക്കുന്നതിനുമായി കണ്ണൂരിൽ പ്രത്യേക സ്കാഡുകൾ പ്രവർത്തനം തുടങ്ങി

ആന്ധ്രാ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തെലുഗു ദേശം പാർട്ടി ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി

മുഖ്യ മന്ത്രി ചന്ദ്രബാബു നായിഡു കുപ്പം മണ്ഡലത്തിൽ മത്സരിക്കും

ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച പ്രാർത്ഥനക്ക് എത്തിയവരാണ് ദുരന്തത്തിൽപ്പെട്ടത് പള്ളികളിൽ വൻ തിരക്കായിരുന്ന സമയത്താണ് അക്രമികൾ വെടിവെച്ച തെന്ന് പൊലീസ് അറിയിച്ചു പ്രാർത്ഥനക്കായി പള്ളിയിലേക്ക് വരികയായിരുന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സംഭവത്തെ തുടർന്ന് ന്യൂസിലന്റ് ബംഗ്ലാദേശ് മൂന്നാം ടെസ്റ്റ് റദ്ദാക്കി

ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ കെഎം ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ചി ന്റേതാണ് വിധി അതേസമയം വാതുവെപ്പ് കേസിൽ നിന്ന് ശ്രീശാന്തിനെ സുപ്രീംകോടതി കുറ്റവിമുക്തനാക്കിയിട്ടില്ല

ശ്രീശാന്തിനെതിരായ അച്ചടക്ക നടപടി സംബന്ധിച്ച് മൂന്നു മാസ ത്തിനകം ബി സി സി ഐ തീരുമാന്മെടുക്കണം ക്രിമിനൽ കേസിന്റെ നടപടികളെ ഇതു ബാധിക്കരുതെന്നും കോടതി വൃക്തമാക്കി മത്സരരംഗത്തേക്ക് തിരിച്ചു വരുമെന്ന് ശ്രീശാന്ത് ഇതിനായി ആറു മാസം മുമ്പു തന്നെ പരിശീലനം തുടങ്ങിയെന്നും സ്കോട്ടിഷ് ലീഗിൽ കളിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ബി സി സി ഐയുടെ തീരുമാനത്തിൽ പ്രതീ ക്ഷയുണ്ടെന്നും ശ്രീശാന്ത് ഡൽഹിയിൽ മാധ്യമ പ്രവർത്തക രോട് പറഞ്ഞു

ഇന്ന് നടക്കുന്ന ബാലൻസ്ഡ് ബീം വിഭാ ഗത്തിലും ദീപ മത്സരിക്കുന്നുണ്ട് ക്രിക്കറ്റ് ഭരണ രംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ സഹായിക്കുന്നതിന് മധ്യസ്ഥ നായി അഭിഭാഷകൻ പി എസ് നരസിംഹയെ സുപ്രീംകോടതി നിയോഗിച്ചു

നിലവിൽ ബി സി സി ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയെ സഹായിക്കുന്ന അമിക്കസ് ക്യൂറിയാണ് നരസിംഹ ഭുവനേശ്വറിൽ സൂപ്പർ കപ്പ് ഫുട്ബോളിലെ ആദ്യ മത്സര ത്തിൽ രാത്രി എട്ടരയ്ക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ആരോ സിനെ നേരിടും

എൽ ടീമുകളാണ് പങ്കെടുക്കുന്നത് മാറാട് കലാപക്കേസ് പ്രതി മുഹമ്മദ് ഇല്യാസിനെ കോഴി ക്കോട് ബീച്ചിൽ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തി ജീവപ ര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അയാൾ സുപ്രീംകോടതി ജാമ്യ ത്തിൽ പുറത്തിറങ്ങിയതായിരുന്നെന്ന് പൊലീസ് അറിയിച്ചു മൃത ദേഹം മെഡിക്കൽ കോളെജ് ആശുപത്രിയിലേക്ക് മാറ്റി

യു ചിത്ര ജിൻസൺ ജോൺസൺ വൈ

ഇവരെ കൂടാതെ ജംപ് ഇനങ്ങളിൽ നീനാ പിന്റോയും നയന ജെയിംസും കേരളത്തിനായി മത്സരിക്കും

സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പുറത്തുപോകണമെന്നാവ ശ്യപ്പെട്ട് വീണ്ടും സഭയുടെ നോട്ടീസ്

കനോൻ നിയമം പ്രകാരം കന്യാസ്ത്രീ പാലി ക്കേണ്ട ചട്ടം ലംഘിച്ചതാണ് പുറത്താക്കലിന് കാരണമെന്നും സഭ നോട്ടീസിൽ പറഞ്ഞു

സഭയിൽ തുടരാനാണ് തന്റെ തീരുമാനമെന്ന് അവർ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു സിനഡ് തീരുമാനം ലംഘിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്താണ് പ്രധാന കുറ്റമായി സഭ ഇത്തവണ ചൂണ്ടിക്കാണിച്ചതെന്നും അവർ പറഞ്ഞു

സംഭവത്തിൽ മൂന്നു പേരെ പൊലീസ് അറസ്റ്റു ചെയ്തു കോട്ടയ്ക്കൽ സ്വദേശികളായ റിഷാ ദ് മജീദ് രണ്ടത്താണി സ്വദേശി അജീഷ് എന്നിവരാണ് പിടിയി ലായത് ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു പുഴകളിൽ കർഷകർ വെച്ച ജലസേചന് പമ്പുകൾ എടുത്തുമാറ്റുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നട്ടപടി അവസാനി പ്പിക്കണമെന്ന് കർഷക സംഘം കാസർകോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു

പമ്പുകളുടെ ഉപയോഗത്തിൽ ശാസ്ത്രീയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരം പമ്പുകൾ പിടിച്ചെ ടുക്കുന്നത് കൃഷിനാശത്തിന് വഴിവെക്കുമെന്ന് ജില്ലാ സെക്ടടറി സി എച്ച് കുഞ്ഞമ്പു പറഞ്ഞു